ജെ പി നേതാവ് പ്രമോദ് സാവന്ത് പുതിയ ഗോവ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു

ജെ പി നേതാവ് പ്രമോദ് സാവന്ത് പൂതിയ ഗോവ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ് ചെയ്ത് അധികാരമേറ്റു മുഖ്യമന്ത്രി മനോഹർ പരീക്കറുടെ നിര്യാണത്തെ തുടർന്നാണ് സാവന്ത് പുതിയ സംസ്ഥാന മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്

സുധിൻ ധവാലിക്ക്ർ മനോഹർ അജ്ഗോങ്കർ എന്നിവരാണ് എം

പ്പിജയ് സർദേശായി വിനോദ് പലേക്കർ ജയേഷ് സാൽഗോങ്കർ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത ഗോവാ ഫോർവേഡ് പാർട്ടിയിലെ പ്രതിനിധികൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് പ്രമോദ് സാവന്ത് നിയമസഭാ സ്പീക്കർ സ്ഥാനം രാജിവച്ചിരുന്നു പാർട്ടി ഏൽപിച്ച ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റുമെന്ന് മുഖ്യമന്ത്രി സാവന്ത് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കുറവ് വരുത്തിയ നികുതി നടപ്പാക്കുന്ന കാര്യൂത്തിൽ ് യോഗം തീരുമാനമെടുത്തേക്കും

മാതൃകാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റചട്ടം നിലനിൽക്കുന്ന സാഹചരൃത്തിൽ നികുതി നിരക്കുകളിൽ മാറ്റം വരുത്തുന്ന കാര്യം യോഗം ചർച്ചചെയ്യില്ല

ന്യൂഡൽഹിയിൽ ചേർന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് സ്ഥാനാർഥിപട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത് പശ്ചിമ ബംഗാളിലെ ജാംഗ്പൂർ സീറ്റിൽ മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകൻ അഭിജിത് മത്സരിക്കും ബഹ്റാംപൂരിൽ അധീർ രഞ്ജൻ ചൌധരിയും റായ്ഗഞ്ചിയിൽ ദീപാ ദാസ്മുൻഷിയുമാണ് സ്ഥാനാർഥികൾ

ഡി പി വളർച്ച നേടാനാവില്ലെന്ന് നിതി ആയോഗ് കാർഷിക മേഖലയിൽ വൻതോതിൽ നിക്ഷേപം ആകർഷിക്കണമെന്ന് നിതി ആയോഗ് സി ഇ ഒ അമിതാഭ് കാന്ത് പറഞ്ഞു ന്യൂഡൽഹിയിൽ കാർഷിക പുരസ്കാര ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നൂതന സാങ്കേതിക വിദൃയോടൊപ്പം കാർഷിക മേഖലയിൽ പരിഷാകരങ്ങളും നടപ്പാക്കണം

അമിതാഭ് കാന്ത് പറഞ്ഞു

കൊച്ചി നാവിക സേനയുടെ ഏറ്റവും വലിയ യുദ്ധ പരിശീലനമായ ട്രോപെക്സ് പദ്ധതി വിലയിരുത്താൻ കൂടിയ കമാന്റർമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാവികസേനയുടെ നേതൃത്വത്തിൽ നടത്തിയ യുദ്ധ പരിശീലന യജ്ഞ പരിപാടി വിജയകരമായി പൂർത്തിയാക്കിയ നാവിക സേനാംഗങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു

പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ബന്ധപ്പെട്ട വായ്പാ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയാണ് നീരവ് മോദി സാമ്പത്തിക കുറ്റകൃതൃത്തിന്റെ പേരിൽ നീരവ് മോദിയെ വിട്ടുകിട്ടണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് നടപടി വാറന്റ് പുറപ്പെടുവിച്ചതായി ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ മജിസ്ട്രേറ്റ് കോടതി അന്വേഷണ ഏജൻസിയെ അറിയിച്ചിട്ടുണ്ട് പോലീസ് ഉടൻ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യും

ബി ഐ യുടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും സംയുക്ത സംഘം താമസിയാതെ ലണ്ടനിലേയ്ക്ക് പോകും

നിർമ്മാണ ഓഡിറ്ററായ നീരജ് കുമാർ ദേശായിയെയാണ് മുംബൈ പൊലീസ് അറസ്റ്റ് ചെയ്തത് കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് അറസ്റ്റെന്ന് ഡെപ്യൂട്ടി പൊലീസ് കമ്മീഷണർ അഭിഷേക് ത്രിമുഖെ അറിയിച്ചു മനപ്പുർവമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിട്ടുള്ളത്

ഷിയാൻജിയാങ് പ്രവിശൃയിലെ ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ നടത്തിയ നടപടി സംബന്ധിച്ച് ഇന്നലെ പുറപ്പെടുവിച്ച ധവളപത്രത്തിലാണ് ചൈനയുടെ പരാമർശം ഭീകരവാദത്തിന്റെയും വിഭാഗീയതയുടെയും ആഗോള വ്യാപനം മാനവരാശിയ്ക്ക് വലിയ ഭീഷണിയാണെന്ന് പരാമർശത്തിൽ പറയുന്നു പാക് വിദേശകാര്യമന്ത്രി ഷാ മെഹ്മ്മൂദ് ഖുറേഷിയുടെ ചൈനാ സന്ദർശന വേളയിലാണ് ദേശീയ കൌൺസിൽ ധവളപത്രം പുറപ്പെടുവിച്ചത്

കൂടുതൽ വിവരങ്ങളുമായി സുരേഷ്

എൻ ഓഫീസിന്റെ സഹകരണത്തോടെ ദേശീയ ദുരന്ത നിയന്ത്രണ് അതോറിറ്റിയാണ് രണ്ടു ദിവസത്തെ ശില്പശാല സംഘടിപ്പിക്കുന്നത് സൂപ്രധാന അടിസ്ഥാന ഘടനാ മേഖലയിൽ ദുരന്ത പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാനുള്ള മികച്ച മാതൃകകൾ കണ്ടെത്തുകയാണ് ലക്ഷ്യം ഗതാഗതം ഊർജ്ജം വാർത്താവിനിമയം ജലസംരക്ഷണം എന്നീ മേഖലകളുടെ സംരക്ഷണത്തിനായി ഗവേഷണം പ്രോത്സാഹിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ ശില്പശാല ചർച്ച ചെയ്യും ദുരന്ത ലഘൂകരണത്തിനും പുനസ്ഥാപനത്തിനും അടുത്ത മൂന്നു വർഷത്തേക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യും ആഗോള വികസന ബാങ്കുകൾ യു എൻ ഏജൻസികൾ ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയിലെ പ്രതിനിധികൾ പൊതു സ്വകാര്യ മേഖലയിലെ നയരൂപീകരണ വിദഗ്ധർ എന്നിവർ ആശയങ്ങൾ പങ്കുവയ്ക്കും വിവിധ രാജ്യങ്ങൾ ദുരന്ത പ്രതികരണ ലഘൂകരണ രംഗത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതികൾ പരസ്പരം മനസ്സിലാക്കാൻ ശില്പശാല വേദിയൊരുക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വൈദ്യുത കമ്പനിയിലെ തൊഴിലാളികളാണ് ഇവർ

കഴിഞ്ഞയാഴ്ചയുണ്ടായ സമാനമായ മറ്റൊരു സംഭവത്തിലും അവന്തിപുരയിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു

എഫ് ജവാൻ കൊല്ലപ്പെട്ടു

ബസ്തർ ഡിവിഷനിൽ വിദൂര നിയന്ത്രണ സംവിധാനം ഉപയോഗിച്ച് സ്ഫോടന പരമ്പര നടത്തുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു തെരച്ചിൽ സംഘത്തിൽപ്പെട്ട സി ആർ

സുരക്ഷാസേന തിരിച്ചടിച്ചതോടെ മാവോയിസ്റ്റുകൾ വനത്തിലേയ്ക്ക് രക്ഷപ്പെട്ടു പരിക്കേറ്റ രണ്ടു ജവാൻമാരുടെ നില ഗുരുതരമാണ്

സി സി

സി സി

പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ എഹ്സാൻ മാനി ഇന്നലെ കറാച്ചിയിൽ അറിയിച്ചതാണ് ഇക്കാര്യം

ഇന്ത്യൻ ഗവൺമെന്റ് അനുമതി നൽകാതിരുന്നതിനാൽ ഇന്ത്യൻ ടീം മത്സരത്തിൽ നിന്നും പിൻമാറിയിരുന്നു

സി ബി പരാതി നൽകിയത്